ദക്ഷിണേന്ത്യയിൽ ബി ജെ

പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻ പിള്ള

സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമ നിർദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു

എറണാകു ളത്ത് ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയും പത്രിക നൽകിയ വരിൽ ഉൾപ്പെടുന്നു കേന്ദ്രത്തിൽ ബദൽ നയത്തോടുകൂടിയ മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോൺഗ്രസും ബി

പി യും ഉദാരവൽക്ക രണ നയമാണ് നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ എൽ

എഫ് യോഗത്തിൽ കുറ്റപ്പെടുത്തി ഇതിൽ നിന്ന് വ്യത്യ സ്തമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് അധികാര ത്തിൽ വരേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ജെ പി ഇനി അധി കാരത്തിൽ വന്നാൽ സർവനാശമായിരിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു ജനവിരുദ്ധ നയങ്ങളാണ് കോൺഗ്രസിനെ രാജ്യത്ത് തകർത്തതെന്നും പിണറായി പറഞ്ഞു

മൻമോ ഹൻസിംഗ് ഗവൺമെന്റ് കടുത്ത ജനദ്രോഹ നടപടികളാണ് സ്വീക രിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ പ്രാധാന്യം കുറക്കാൻ ലക്ഷ്യമിട്ടാണ് രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു

ജെ പി ക്കെതിരെ തന്നെ യാണ് അദ്ദേഹത്തിന്റെ മത്സരമെന്നും അദ്ദേഹം വ്യക്തമാക്കി

രാഹുലിനെതിരെ മര്യാദ ലംഘിച്ചു വിമർശ നമാണ് ഇടതുപക്ഷം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രാഹുലിന്റെ മറുപടി ജനഹൃദയത്തെ സ്പർശിച്ചു വെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു സംസ്ഥാനത്ത് സി

ഐ

എമ്മിനെതിരെ പ്രചാരണം നടത്തില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാന്യതയാണെന്ന് അദ്ദേഹം മുക്കത്ത് പറഞ്ഞു രാഹുൽഗാന്ധിക്ക് മറുപടിപറയാൻ മാത്രം സി

എം ഇല്ലെന്നും അതിന് കേരളത്തിലെ കോൺഗ്രസ് നേതാ ക്കൾ തന്നെ ധാരാളമാണെന്നും ചെന്നിത്തല പറഞ്ഞു

ഐ എം അസ്തമിക്കുന്ന പാർട്ടിയാണെന്നും അദ്ദേഹം അഭി പ്രായപ്പെട്ടു

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോട് പോലും കേരളത്തിലെ സി

എം കേരളനേതാക്കളാണെന്നും ചെന്നിത്തല പറഞ്ഞു വയനാട്ടിലെ യു

എഫ് സ്ഥാനാർത്ഥിയുടെ കേന്ദ്ര തെര ഞ്ഞെടുപ്പ് കമ്മറ്റി ഓഫീസ് മുക്കത്ത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട്ടെ യു

എഫ് സ്ഥാനാർത്ഥിക്കെതിരായ ആരോ പണം സി

തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം കെട്ടുകഥകൾ ധാരാളംവരാമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ആരോപണം ചെലവാകാൻ പോകുന്നില്ലെന്നും ജനങ്ങൾ തള്ളി ക്കളയുമെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു കേരളത്തിലുണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ട് അമ്മിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നതിൽ കഴമ്പില്ലെന്നും വിദഗ്ധ പരിശോധനക്ക് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കോഴി ക്കോട്ട് പറഞ്ഞു അമിക്കസ് ക്യൂറിക്കെതിരായ പരാമർശങ്ങൾ നീതിന്യായവ്യവസ്ഥയോടുള്ള അവഹേളനമാണെന്നും അമിക്കസ് ക്യൂറി കോടതിയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറ ഞ്ഞു

ഇടുക്കിയിൽ കൃത്യമായ സമയത്ത് ഡാം തുറന്നിരുന്നുവെങ്കിൽ ദുരിതമുണ്ടാകില്ലായിരുന്നു ഡാംതുറക്കണമെന്ന് സ്ഥലം സന്ദർശിച്ചപ്പോൾ താൻ ആവശ്യപ്പെട്ടിരുന്നു

കേരളത്തിന്റെ പ്രളയത്തിന് ഉത്തരവാദിതും ഗവൺമെന്റിനാണെന്നും ജൂഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി് ഒളിക്യാമറ ദൃശ്യത്തിന് പിന്നിൽ സി

ഐ എമ്മാണെന്ന ആരോപണം ഉന്നയിച്ച യു

എഫ് സ്ഥാനാർത്ഥി തെളിവ് നൽക ണമെന്ന് പാർട്ടി കോഴിക്കോട് ജില്ലാസെക്രട്ടറി പി മോഹനൻ ആവ ശ്യപ്പെട്ടു നഗ്നമായ തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് നടന്നതെന്നും രാഘവന്റെ കരച്ചിൽ തിരക്കഥ പ്രകാരം തയ്യാറാക്കിയതാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് ആരോപിച്ചു

എമ്മിനെതിരെ ആരോപണം ഉന്നയിച്ച് അദ്ദേഹം അപഹാസ്യനാവുകയാണെന്ന് മോഹനൻ പറഞ്ഞു കോഴിക്കോട്ടെ യു

എഫ് സ്ഥാനാർത്ഥിക്കെതിരായ ഒളിക്യാമറ വിവാദം സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കല്കടർ അറിയിച്ചു ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധി ക്കണമെന്നാവശ്യപ്പെട്ട് എം കെ രാഘവനും നടപടിയാവശ്യപ്പെട്ട് എൽ ഡിഎഫും വരണാധികാരിയെ സമീപിച്ചിട്ടുണ്ട് ഒളിക്യാമറ വിവാദത്തിൽ ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കൈമാറിയിട്ടില്ലെന്നും ഇതേക്കുറിച്ച് ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തെറ്റാണെന്നും ജില്ലാ കലക്ടർ സാംബശിവ റാവു അറിയിച്ചു

എമ്മിനെതിരെ ഒന്നും പറയില്ലെന്ന രാഹുൽഗാന്ധി യുടെ പ്രസ്താവന രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കാത്തതാ ണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി

വയനാട്ടിൽ രാഹുൽ രാഷ്ട്രീയ അഭയർത്ഥിയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രസ്താ വന ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും ശ്രീധരൻപിള്ള കുറ്റ പ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പി എം നരേന്ദ്രമോദി എന്ന ചിത്രത്തിന്റെ റിലീസ് തടയണമെന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു ഈ ആഴ്ച അവസാനം ചിത്രം കണ്ടശേഷം ഇതുസംബന്ധിച്ച ഹർജി പരിഗണിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാരനെ അറി യിച്ചു ചിത്രം തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് നിർമ്മിച്ചതാണെന്നും അത് വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും കാണിച്ചാണ് ഹർജി നൽകിയത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം ചാലക്കുടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നെഞ്ചു വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശി പ്പിച്ച യു

എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനെ ആൻജി യോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി

മൊബൈൽ സിം കാർഡുകൾക്കും ബാങ്ക് അക്കൌണ്ടുകൾ തുറക്കുന്നതിനും ആധാർ സ്വമേധയാ ഉപയോഗിക്കാമെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഓർഡിനൻസ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജി സുപ്രീംകോടതി നിരസിച്ചു

എ നസീർ എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജിക്കാരോട് ആവ ശ്യപ്പെട്ടു കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ലെന്നും കോടതി പറ ഞ്ഞു

കോടികളുടെ കാലിത്തീറ്റ അഴിമതിയുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകളിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് ആർ

ഡി നേതാവ് ലാലുപ്രസാദ് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ബുധനാഴ്ച വാദം കേൾക്കും ഹർജിയിൽ ചൊവ്വാഴ്ചയ്ക്കകം മറുപടി നൽകാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷ നായ ബെഞ്ച് സി

കേസിൽ ശിക്ഷി ക്കപ്പെട്ട ലാലു റാഞ്ചിയിലെ ബിർസാമുണ്ട സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത്

എഫ് ജവാൻ മരിച്ചു

ധമാത്രി ജില്ലയിലെ ചമേദ ഗ്രാമത്തിൽ റോന്തുചുറ്റുന്നതിനിടെ ഇന്നു പുലർച്ചെയായിരുന്നു സംഭവം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അനധികൃതമായി കട ത്താൻ ശ്രമിച്ച രണ്ടേമുക്കാൽ കിലോ സ്വർണം കസ്റ്റംസ് പിടികൂ ടി ദോഹയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയായ യുവതിയിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് കുഴമ്പുരൂപത്തിലാക്കിയ സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു

പട്ടാമ്പി സ്വദേശിയായ അബ്ദുൽമജീദ് ഭാര്യ നജ്മ മകൻ നജീബ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്

കാറിൽ കടത്തുകയായിരുന്ന മൂന്നംഗ സംഘത്തിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് കണ്ണൂർ ജില്ലയിലെ മാച്ചേരി കൊറ്റാളി കണ്ണോത്തുംചാൽ എന്നിവിടങ്ങ ളിലെ മൂന്നുപേരാണ് അറസ്റ്റിലായത് ഇവരെ ഉച്ചയ്ക്ക് ശേഷം മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കും നടിയെ ആക്രമിച്ച കേസിൽ രഹസ്യ വിചാരണ നടത്താമെന്ന് എറണാകുളം സി ബി ഐ വിചാരണ കോടതി ഉത്തരവിട്ടു

നേരത്തെ തന്നെ ഈ ഉത്തരവ് നിലവിൽ വന്നിരുന്നെങ്കിലും കാറി കളിലും നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിലും പുറംജോ ലിക്ക് തുടർന്നും ആളുകളെ നിയോഗിക്കുന്നതായി ശ്രദ്ധ യിൽപ്പെട്ടതായി അദ്ദേഹം അറിയിച്ചു ഇത്തരത്തിൽ പുറംജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശാരീരികാസ്ഥാസ്ഥ്യം അനുഭ വപ്പെടുകയോ അപകടം സംഭവിക്കയോ ചെയ്താൽ ഇവരെ തൊഴിലെടുപ്പിച്ചവർക്കെതിരെ പൊലീസ് സ്വമേധയാ കേസെടു ക്കുമെന്നും കലക്ടർ പറഞ്ഞു ക്രിമിനൽ കേസ് അടക്കം കർശന നടപടികളാണ് തൊഴിലു ടമയ്ക്കെതിരെ ഉണ്ടാവുകയെന്നും കലക്ടർ പറഞ്ഞു

വേനൽ കടുത്തോടെ കുപ്പിവെള്ള വിപ ണിയിലെ ചൂഷണം ഇല്ലാതാക്കാനാണ് സപ്ലൈകോയുടെ നടപ ടി

മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ സ്പ്ലൈകോ മെഡിക്കൽ ഷോപ്പുകൾ എന്നിവ വഴിയായിരിക്കും വിതരണം

മലപ്പുറം തിരൂർ പരപ്പനങ്ങാടി പെരിന്തൽമണ്ണ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ബസുകളാണ് പണിമുടക്കുന്നത് പണിമുടക്ക് അറിയാതെ എത്തിയ യാത്രക്കാർ വലഞ്ഞു